രാജ്യത്ത് പുതിയമാറ്റത്തിന് വഴി തെളിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം

നാളെ മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തും

അഡ്വാൻസ്ഡ് ടെക്നോളജി ഈ വർഷം തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മുഖൃമന്ത്രി ആഘോഷങ്ങളില്ലാതെ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറി

വ്യാപാരം ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചികിത്സാ മേഖല തുടങ്ങിയവ വളരെവേഗം പുതിയ സാങ്കേതിക വിദ്യാ മാറ്റങ്ങളിലേക്ക് നീങ്ങുകയാണ്

രാജ്യം ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് നാം നേരിട്ട് അനുഭവിക്കുകയാണെന്നു ശ്രീ

ചൂടുവെള്ളം കഷായം എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും ആയുഷ് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ദിനചരൃയുടെ ഭാഗമാക്കിയാൽ വളരെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതത്തിന്റെ പാരമ്പര്യ സിദ്ധാന്തങ്ങളെ മുന്നോട്ടു കൊണ്ടു പോകാനുള്ള വെല്ലുവിളി രാജൃത്തെ യുവതലമുറ ഏറ്റെടുക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

രോഗത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും മാസ്ക് ആവശൃമാണ്

ഇത് അടിസ്ഥാന ശുചിത്വത്തിന്റെ നിലവാരമുയർത്തും കൊറോണ പകരുന്നത് തടയാനും ഇത് സഹായകമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗൃവിദഗ്ധർ പങ്കെടുത്ത കോവിഡ് രാജ്യാന്തര പാനൽ ചർച്ച തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

ഇന്ന് മുതൽ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യ കിറ്റ് വിതരണം ആരംഭിക്കും

ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികളും മെയ് മൂന്നിന് അവസാനിക്കുന്ന് ലോക്ഡൌൺ രണ്ടാം ഘട്ടത്തിനു ശേഷമുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യുമെന്ന് കരുതപ്പെടുന്നു

കൂടുതൽ വിവരങ്ങളുമായി ആകാശ്പ്പാണി കാസർകോഡ് ജില്ലാ പ്രതിനിധി പി

ഷാർജയിൽ നിന്നെത്തി ഹോം ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ഏഴ് വയസ്സുകാരിക്ക് മുപ്പത്തഞ്ചാംദിവസം ശാസ്താംകോട്ടയിൽ സ്ഥിരീകരിച്ച രോഗം പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്പിതികരണം സ്ക്രീനിംഗ് കോഴിക്കോട് മെഡിക്കുൽ കോളേജ് കാമ്പസ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന കോപ്പീഡ് കെയർ സെന്ററിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹ്ചരൃത്തിൽ ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൌർജിതമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു